ഓക്സിജൻ വിതരണം സംബന്ധിച്ച ഉന്നത്തല യോഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി

എന്നിവ സംബന്ധിച്ച് ദേശ്വീയിനിയം രൂപീകരിക്കാൻ കേന്ദ്ര സർക്കാരിനോട് സുപ്രീംകോടതി

വാക്സിൻ കുത്തിവയ്പ്പിനുള്ള രജിസ്ട്രേഷൻ ബുധനാഴ്ച മുതൽ ആരംഭിക്കും

തുടക്കമിട്ടതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ

സംസ്ഥാനങ്ങളുടെ ഓക്സിജൻ ആവശ്യം തിരിച്ചറിഞ്ഞ് മതിയായ വിതരണം ഉറപ്പു വരുത്തുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചു വരിക യാണെന്ന് മുതിർന്ന ഉദ്യോഗസ്ഥർ പ്രധാനമന്ത്രിയെ അറിയിച്ചു സംസ്ഥാനങ്ങളിലേക്കുള്ള ഓക്സിജൻ വിതരണം വർദ്ധിപ്പിച്ചു വരികയാണ്

സ്വകാര്യ പൊതുമേഖല സ്റ്റീൽ പ്ലാന്റുകളും മറ്റ് വ്യവ സായങ്ങളും ഓക്സിജൻ ഉത്പാദനം വർദ്ധിപ്പിക്കുന്നതിനായി പ്രവർത്തിച്ചു സംസ്ഥാനങ്ങളിൽ അനുവദിച്ച പിഎസ്എ ഓക്സി ജൻ പ്ലാന്റുകൾ പ്രവർത്തനസജ്ജമാക്കാൻ നീക്കം നടക്കുക യാണെന്നും ഉദ്യോഗസ്ഥർ പ്രധാനമന്ത്രിയെ അറിയിച്ചു സംസ്ഥാന ങ്ങളിലേക്കുള്ള ഓക്സിജൻ വിതരണം സുഗമമാക്കണമെന്ന് പ്രധാ നമന്ത്രി ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി വിതരണത്തിൽ തടസ്സം നേരിടുന്നത് പരിഹരിക്കാൻ പ്രാദേശിക ഭരണകൂടങ്ങളുൾപ്പെടെ ഇടപെടൽ നടത്തണം രാജൃത്തെ ഓക്സിജൻ ഉത്പാദനവും വിത രണ സംവിധാനങ്ങളും മെച്ചപ്പെടുത്തുന്നതിനുള്ള മാർഗ്ഗങ്ങൾ ആരായണമെന്ന് പ്രധാനമന്ത്രി മന്ത്രാലയങ്ങളോട് നിർദ്ദേശിച്ചു ക്യാബിനറ്റ് സെക്രട്ടറി പ്രിൻസിപ്പൽ സെക്രട്ടറി ഹോം സെക്രട്ടറി ഹെൽത്ത് സെക്രട്ടറി തുടങ്ങിയ് മുതിർന്ന ഉദ്യോഗസ്ഥർ യോഗ ത്തിൽ പങ്കെടുത്തു ന്യൂസ് ഡസ്ക് ആകാശവാണി

കേന്ദ്ര ആഭ്യ്ത്ര സെക്രട്ടറി അജയ്കുമാർ ഭല്ലയാണ് ചീഫ് സെക്രട്ടറിമാർക്കും മറ്റ് ഉദ്യോഗസ്ഥർക്കും ഇതുസംബന്ധിച്ച് കത്തയച്ചത്

ലോക്ഡൌൺ പ്രഖ്യാപിക്കാൻ ഹൈക്കോടതികൾക്ക് അധികാരമുണ്ടോ എന്ന കാര്യം പരിശോധിക്കുമെന്നും ചീഫ് ജസ്റ്റിസ് എസ് എ ബോംബ്ഡെ അധ്യക്ഷനായ ബഞ്ച് വ്യക്തമാക്കി

കോവിഡ് പോർട്ടലിലൂട്ടെ രജിസ്റ്റർ ചെയ്യാമെന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കി ക്രെടുത്ത മാസം ഒന്നാം തീയതി മുതലാണ് മുന്നാം വാക്സിനേഷൻ ആരംഭിക്കുന്നത്

ഇതുവരെ സംസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്തതിൽ വച്ച് ഏറ്റവും ഉയർന്ന നിരക്കാണിത്

രണ്ടോ മൂന്നോ ഘട്ടങ്ങളായി എല്ലാവർക്കും വാക്സിൻ നൽകുമെന്ന് മുഖ്യമന്ത്രി അറിയിച്ചു കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കുന്ന കോവിഡ് വാക്സിനുവേണ്ടി മാത്രം കാത്തുനിൽക്കാൻ ഉദ്ദേശിക്കുന്നില്ല സംസ്ഥാനം നേരിട്ട് വാക്സിൻ വാങ്ങുന്നതിന് മരുന്ന് കമ്പനികളുമായുള്ള ചർച്ച ഉൾപ്പെടെയുള്ള നടപടികൾ ആരംഭിച്ചതായും മുഖ്യമന്ത്രി അറിയിച്ചു

എല്ലാ പൌരന്മാർക്കും വാക്സിൻ സൌജന്യമായി ്യനൽകണമെന്നും കേന്ദ്രത്തിനും സംസ്ഥാനങ്ങൾക്കും വെബ്ബ്റേ തുക എന്നതു മാറ്റി വില ഏകീക രിക്കണമെന്നും ശ്രീമതി മിമ്താ ബാനർജി വൃക്തമാക്കി

ഡൽഹിയിലേ ക്കുള്ള ഓക്സിജൻ വിതരണം അയൽ സംസ്ഥാനങ്ങൾ തടസ്സപ്പെടു ത്തുന്നതായി ഡൽഹി ആരോഗ്യ മന്ത്രി മനീഷ് സിസോദിയ ആരോ പിച്ചു ഡൽഹിയിലെ ചില ആശുപത്രികളിൽ ഓക്സിജൻ തീർത്തും അവശേഷിക്കുന്നില്ലെന്നും ആരോഗ്യ മന്ത്രി അറിയിച്ചു

കൂടുതൽ പേർ ജോലിക്കെത്തേണ്ട ആവശ്യമുള്ള ഓഫീസുക ളിൽ സംസ്ഥാന ദൂരന്ത നിവാരണ അതോറിറ്റിയുടെ അനുമതി വാങ്ങിയ ശേഷം ഓഫീസ് മേധാവിക്ക് തീരുമാനമെടുക്കാം

ട്രെയിൻ മെട്രോ സേവനങ്ങൾ സർക്കാർ ഉദ്യോഗസ്ഥർക്കും ആരോഗ്യ പ്രവർത്ത കർക്കും ചികിത്സ തേടുന്നപ്പിർക്കും ഭിന്നശേഷിയുള്ളവർക്കും മാത്ര മായി പരിമിതപ്പെടുത്തിയ്ട്രീട്ടുക്ട്

ന്യൂസ് ഡസ്ക് ആകാശവാ്ണി

മുംബെയിലെ ജയിലുകളിലാണ് ഏറ്റവും കൂടുതൽ പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചത്

സ്ഥിതിഗതികൾ മെച്ചപ്പെടുന്നതനുസരിച്ച് രജിസ്ട്രേഷൻ പുനരാരംഭിക്കും

ഡി

യുടെ നേതൃത്വത്തിൽ ഡൽഹിയിൽ സജ്ജീകരിച്ച കോവിഡ് ആശുപത്രിയിലേക്ക് വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും ഡോക്ടർമാരുൾപ്പെടെയുള്ള ആരോഗ്യ പ്രവർത്തകരെ വ്യോമസേനാ സഹായത്തോടെ എത്തിച്ചു

ശുദ്ധോർജ്ജം ഊർജ്ജക്ഷമത വനുവ്വത്കരണം ജൈവവൈവിധം എന്നിവ സംബന്ധിച്ച് രാജ്യം ഉറച്ച് ചുവടുവയ്പുകൾ നടത്തി കാലാവസ്ഥാ വ്യതിയാനം സംബന്ധിച്ച നേതൃതല ഉച്ചകോടിയിൽ വീഡിയോ കോൺഫറൻസിങ്ങിലൂടെ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം

വോട്ടെടുപ്പ് സമാധാനപരമായിരുന്നു എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു

ഒരു ബഹിരാകാശ സഞ്ചാരിക്ക് പത്ത് മിനിട്ട് നേരം ശ്വസിക്കാൻ ഇത്രയും ഓക്സിജൻ മതിയാവും ചൊവ്വയിലേക്കുള്ള മനുഷ്യ ദൌത്യങ്ങളിൽ ഓക്സിജൻ ഉത്പാദനത്തിനുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്താനാണ് നാസ യുടെ നീക്കം